രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഇന്നലെയാണ് സഭാ സമ്മേളനം തുടങ്ങിയത് ലോക്സഭയിലെ കക്ഷിനേതാക്കളുടെ യോഗം സ്പീക്കർ ഓംബിർള ഇന്നലെ വിളിച്ചു ചേർത്തിരുന്നു രാജ്യസഭയിലെ കക്ഷികളുടെ യോഗം അധൃക്ഷൻ എം

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി രാജ്യസഭ രാവിലെയും ലോക്സഭ ഉച്ചയ്ക്ക്ശേഷവും അഞ്ച് മണിക്കൂർ വീതമുള്ള ഷിഫ്റ്റുകളായാണ് സമ്മേളിക്കുന്നത്

ഡി

ഡി

തിങ്കളാഴ്ച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പൊതുബജറ്റ് അവതരിപ്പിക്കും

വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കുമെന്ന് യു പി മുഖൃമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഓഫീസ് ട്വീറ്റ് ചെയ്തു

കോവിഡിനെ നേരിടുന്നതിൽ ബഹ്റിൻ പങ്കാളിയിടുകുന്നതിൽ ഇന്തൃയ്ക്ക് അഭിമാനമുണ്ടെന്നും ഇരുരാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളെ ഇനിയും ശാക്ത്രീക്രിക്കുമെന്നും മറുപടിയായി പ്രധാനമന്ത്രിയുടെ ഓഫ്ട്രീസ് ട്വീറ്റ് ചെയ്തു

രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം അനുസ്മരണ പരിപാടികൾ നടക്കും ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ ഡൽഹിയിലെ രാജ്ഘട്ടിൽ സർവധർമ പ്രാർത്ഥന സഭ സംഘടിപ്പിച്ചിട്ടുണ്ട് കോവിഡ് സാഹചരൃത്തിൽ ലളിതമായ ചടങ്ങുകളോടെയാണ് സംസ്ഥാനത്ത് രക്തസാക്ഷിത്വദിനം ആചരിക്കുന്നത് ജില്ലാതല പരിപാടികളിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും കോവിഡ് മാനദണ്ഡം പാലിച്ച് പങ്കെടുക്കും

ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമായി മുന്നോട്ടു കൊണ്ടുപോകാൻ പ്രതിജ്ഞാ ബദ്ധരാണെന്ന് ഇരുനേതാക്കളും അറിയിച്ചു കോവിഡ് സാഹചരൃത്തിൽ സുരക്ഷിതവും താങ്ങാവുന്നതുമായ വാക്സിൻ ലോകത്തിന് ലഭ്യമാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒത്തൊരുമിച്ച് നീങ്ങാനും ഇരുനേതാക്കളും സന്നദ്ധത അറിയിച്ചു

ജയശങ്കർ ഇസ്രയേലി വിദേശമന്ത്രി ഗാബി ആഷ്കെനാസിയുമായി ടെലഫോൺ സംഭാഷണം നടത്തി ന്യൂഡൽഹിയിൽ ഇസ്രയേൽ എംബസിക്ക് പുറത്തുണ്ടായ സ്ഫോടനത്തെക്കുറിച്ചായിരുന്നു ചർച്ച സംഭവം ഗൌരവത്തിലെ ടുക്കുന്നതായും ഇസ്രയേലി എംബസിക്കും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും സുരക്ഷ ഉറപ്പാക്കുമെണ്ണൂർ കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി അന്വേഷണം പുരോഗമീക്കുകയാണെന്നും കുറ്റവാളികളെ കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

കൃത്യമായ രോഗപ്രതിരോധ മാർഗങ്ങൾ പിന്തുടരുന്ന കേരളത്തിൽ ഇപ്പോൾ രോഗവ്യാപനം കൂടുതലാണെങ്കിലും മരണനിരക്ക് ഇതുവരെ ഒരു ശതമാനം കടന്നിട്ടില്ല

ചൈനയിൽ നിന്ന് വരുന്നവരെ വിമാനത്താവളത്തിൽ നിന്ന് നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പ്രതിരോധത്തിന് തുടക്കം കുറിച്ചു

മാർച്ച് എട്ടിന് അഞ്ച് റാന്നി സ്വദേശികൾക്കുകൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി

ഒരു വർഷം പിന്നിടുമ്പോൾ ലോകത്തെ ഭൂരിപക്ഷം രാജ്യങ്ങളിലും മഹാമാരി പടർന്നു ഓണം ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പും കേരളത്തിൽ രോഗവൃാപനവും രോഗസ്ഥിരീകരണ നിരക്കും വർധിപ്പിച്ചു

നിലവിൽ ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വാക്സിൻ വിതരണം ആരംഭിച്ചത് പ്രതീക്ഷ പകരുന്നു ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇതോടൊപ്പം സൈനിക അർധസൈനിക വിഭ്രാഗ്ങ്ങൾ പൊലീസ് സിവിൽ ഡിഫെൻസ് ഹോംഗാർഡ് മു്നിസിപ്പൽ ജീവനക്കാർ ദുരന്തനിവാരണ പ്രവർത്തകൾ അഗ്നിശമന സേനാംഗങ്ങൾ ജയിൽ ജീവനക്കാർ തുട്ടുങ്ങിയ മുന്നണിപ്രവർത്തകർക്കും വാക്സിൻ നൽകാൻ ആരോഗ്യമന്ത്രാലയം നിർദേശിച്ചു ഇതിനായി വിവിധ മേഖലകളിലെ മുന്നണിപ്രവർത്തകരുടെ വിവരം പുതുക്കാനും മന്ത്രാലയം നിർദേശിച്ചു

ഇന്ത്യയുടെ വാക്സിൻ ഉൽപ്പാദനശേഷി ലോകത്ത് ഏറ്റവും മികച്ചവയിൽ ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു

ഒഴിവാക്കാനാകാത്ത സാഹചര്യത്താൽ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പരിപാടികളെല്ലാം റദ്ദാക്കിയതായി ബിജെപി സംസ്ഥാന ഘടകം പ്രസ്താവനയിൽ അറിയിച്ചു

ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടിനു പകരം യുണൈറ്റഡ് പീപ്പിൾസ്റ് പാർട്ടി ലിബറലുമായും സഖ്യത്തിലേർപ്പെടുമെന്ന് ബ്രീട്ട്ടെപി സംസ്ഥാന പ്രസിഡന്റ് രഞ്ജിത് കുമാർ ദാസ് പറഞ്ഞു

കോവിഡ് ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ വീടുകളിലെ കുട്ടികൾക്കു നിരീക്ഷണ കാലാവധി അവസാനിച്ചതിനുശേഷം തുള്ളിമരുന്ന് നൽകും

നവംബർ എട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ജനവിധി അംഗീകരിക്കാനും ജനാധിപത്യപരമായി നിലയുറപ്പിക്കാനും എല്ലാ കക്ഷികളോടും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചു

ആയിരക്കണക്കിന് കോടി ഡോളറിന്റെ അമേരിക്കൻ ആയുധ വിൽപനയാണ് പുനഃപരിശോധിക്കുന്നത്

എ

ചലച്ചിത്ര പ്രവർത്തകർ അവാർഡ് സ്പീകരിച്ച ശേഷം മുഖ്യാതിഥികൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു